എം വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു കണ്ണൂരിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി പയ്യോളി മേഖലകളിൽ താഴ്ന്നയിടങ്ങളിൽ വെള്ളം കയറി കർണാടകയിൽ വിശ്വാസവോട്ടെടുപ്പ് ബുധനാഴ്ചത്തേക്ക് മാറ്റ ണമെന്ന് മുഖ്യമന്ത്രി എച്ച്

ആവശ്യം തള്ളിയ സ്പീക്കർ ഇത് സംബന്ധിച്ചു റൂളിങ് ഉടൻ നടത്തുമെന്ന് അറി യിച്ചു ഇന്ത്യയുടെ രണ്ടാം ചന്ദ്രയാൻ ദൌതൃത്തിലേക്ക് ഇനി രണ്ടേ കാൽ മണിക്കൂർ മാത്രം ക്രയോജനിക് എഞ്ചിനിൽ ഇന്ധനം നിറച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് കനത്ത സുരക്ഷ യിൽ ഇന്ന് തുറന്നു കോളേജിൽ കെ

യു യൂണിറ്റ് രൂപീ കരിച്ചു

എമ്മിന്റെ ഗൃഹസന്ദർശന യാത്രക്ക് തുടക്കമായി

കെ ശശീന്ദ്രൻ വടക്കൻകേരളത്തിൽ സാമാന്യം ശക്തമായ മഴ തുടരുന്നു കണ്ണൂർ വയനാട് ജില്ലകളിലും കോഴിക്കോടിന്റെ മലയോര മേഖ ലയിലും മഴ ശക്തമാണ് കണ്ണൂരിൽ കാലവർഷവുമായി ബന്ധ പ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കുഞ്ഞിമംഗലത്ത് കുള ത്തിൽ വീണ് റിതുൽ എന്ന യുവാവാണ് മരിച്ചത്

തീരമേഖലയിൽ മഴ കുറഞ്ഞെങ്കിലും കടൽക്ഷോഭം ശക്ത മാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് കാലാവ സ്ഥാകേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർകോ ട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അർധരാത്രി വരെ പൊഴിയൂർ കാസർകോട് മേഖലകളിൽ തിരമാലകൾ ശക്തമായിരിക്കുമെന്ന് സമുദ്രസ്ഥിതിപഠനകേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മൂടാടി പയ്യോളി കീഴരിയൂർ ചെങ്ങോട്ടുകാവ് പ്രദേശങ്ങളിൽ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളംകയറി ദുരിതബാധിതരോട് ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കാൻ അധികൃതർ നിർദേശം നൽകി കണ്ണൂർ ഉളിക്കൽ മണിക്കടവ് പുഴയിൽ ഇന്നലെ ജീപ്പ് മറിഞ്ഞ് കാണാതായ ആൾക്കുവേണ്ടി തെരച്ചിൽ ഇന്നും തുടരു ന്നു മണിക്കടവിലെ ലജീഷിനെയാണ് കാണാതായത് ചപ്പാ ത്ത്പാലം കടക്കവെയാണ് ജീപ്പ് മറിഞ്ഞത് ജീപ്പിലുണ്ടായിരുന്ന മറ്റ് മൂന്നുപേർ രക്ഷപ്പെട്ടിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും പൊലീസും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് കർണാടകയിൽ വിശ്വാസവോട്ടെടുപ്പ് ബുധനാഴ്ചത്തേക്ക് മാറ്റ ണമെന്ന് മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സ്പീക്കറോട് ആവ ശ്യപ്പെട്ടു എന്നാൽ ഇന്നുതന്നെ വിശ്വാസവോട്ടെടുപ്പ് നട ത്തുന്നതിൽ നിന്ന് പിന്നാക്കം പോവാനാവില്ലെന്ന് സ്പീക്കർ കെ

ഇതുസംബന്ധിച്ച റൂളിങ് ഉടൻ നടത്തുമെന്നും സ്പീക്കർ അറിയിച്ചു നിയമസഭയിൽ മുഖ്യമന്ത്രി എച്ച് ഡി കുമാര സ്വാമി കഴിഞ്ഞയാഴ്ചയാണ് ഒറ്റവരി വിശ്വാസപ്രമേയം കൊണ്ടുവന്നത് ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും പ്രമേയത്തിലെ വോട്ടെടുപ്പ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നടത്താതെ സഭ പിരിയുകയായിരുന്നു വിമതപക്ഷത്തേക്ക് പോയ എം

എ മാരെ തിരികെ കൊണ്ടുവരാൻ കോൺഗ്രസും ജനതാദളും അവസാന നിമിഷ ത്തിലും ശ്രമം തുടരുകയാണ് മൂന്ന് എം എൽ എ മാർ പിന്തുണ ച്ചാൽ സ്പീക്കറുടെ കാസ്റ്റിങ് വോട്ടുകൂടി ഉപയോഗപ്പെടുത്തി ഗവൺമെന്റിന് വിശ്വാസവോട്ട് നേടാനാവുമെന്നാണ് ഭരണപക്ഷ ത്തിന്റെ കണക്ക് കൂട്ടൽ എന്നാൽ ഇതിന് രാഷ്ട്രീയ നിരീക്ഷകർ വലിയ സാധ്യത നൽകുന്നില്ല കോൺഗ്രസിലെ ഏത് നേതാവിനെയും മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറാണെന്നും സഖ്യഗവൺമെന്റിനെ എന്ത് വിലകൊടുത്തും സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രിയും മുതിർന്ന നേതാ ക്കളും അറിയിച്ചിട്ടുണ്ട് കുമാരസ്വാമി ഗവൺമെന്റിന്റെ അവസാനദിനമായിരിക്കും ഇന്നെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് ബി

വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി മുതിർന്ന ബി

പി നേതാക്കളുമായി യെദ്യൂരപ്പ ചർച്ചനടത്തി അതിനിടെ വിശ്വാസവോട്ടെടുപ്പ് ഇന്നുതന്നെ നടത്താൻ സ്പീക്കർക്ക് നിർദേശം നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ട് കക്ഷിര ഹിത എം

എ മാർ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കാനാ വില്ലെന്ന് സുപ്രീംകോടതി നാളത്തെ കേസുകളുടെ പട്ടികയിൽ ഹർജി ഉൾപ്പെടുത്താമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു ആർ ശങ്കർ എച്ച് നാഗേഷ് എന്നീ എം എൽ എ മാരാണ് കോടതിയെ സമീപിച്ചത് ലോക്സഭ ഇന്ന് ഉച്ചവരെ നിർത്തിവെച്ചു അന്തരിച്ച അംഗം രാമചന്ദ്ര പസ്വാന് അനുശോചനം അർപ്പിച്ചശേഷമാണ് ഉച്ചയ്ക്ക് രണ്ടുവരെ സഭ നിർത്തിവെക്കുന്നതായി സ്പീക്കർ ഓം ബിർള അറിയിച്ചത് മുൻ ഡൽഹി മുഖ്യമന്ത്രിയും ലോക്സഭാംഗവുമാ യിരുന്ന ഷീലാ ദീക്ഷിതിനും സഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു സഭ ഉച്ചവരെ മാത്രം നിർത്തിവെച്ചതിൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതി ഷേധിച്ചു സിറ്റിങ് അംഗങ്ങൾ മരിച്ചാൽ ചരമോപചാരം അർപ്പിച്ച് ഒരു ദിവസത്തേക്ക് പിരിയുകയാണ് സഭയിലെ കീഴ്വഴക്കം കർണാടകയിലെ സംഭവ വികാസങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് രാജ്യ സഭാനടപടികളും ഉച്ചവരെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ രണ്ടാം ചന്ദ്രയാൻ ദൌത്യത്തിലേക്ക് ഇനി രണ്ടേ കാൽ മണിക്കൂറിന്റെ സമയദൂരം

കോളേജ് കവാടത്തിലും പരിസരത്തും പൊലീസ് ജാഗ്രത പുലർത്തിവരിക യാണ് ഐഡന്റിറ്റികാർഡ് പരിശോധിച്ചശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും കോളേജിലേക്ക് പ്രവേശി ക്കാൻ അനുമതി നൽകുന്നത്

തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ കെ

കോളേജിന് മുന്നിൽ കെ

യു നേതാ ക്കളുടെ സമരപ്പന്തലിലാണ് യൂണിറ്റ് പ്രഖ്യാപനം നടത്തിയത് ഇതു വരെ എസ്

ഐ മാത്രമാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവർത്തിച്ചിരുന്നത് കോളേജിലേക്ക് കെ

യു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു യൂണിവേഴ്സിറ്റി കോളേജ് സംഭവത്തിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനമെന്ന് കെ

യു സംസ്ഥാന പ്രസിഡണ്ട് കെ എം അഭിജിത്ത് അറിയിച്ചു സമരത്തെപരിഹസിച്ച മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീ നർക്കും വിഭ്രാന്തിയാണെന്നും അഭിജിത്ത് തിരുവനന്തപുരത്ത് പറ ഞ്ഞു ലോക്സഭയിൽ ഇടതുപക്ഷ എം പി മാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ബിഹാറിൽ ഗോരക്ഷകരുടെ ആക്രമണത്തിൽ മൂന്നുപേർ മരിച്ച സംഭവത്തിലാണ് പ്രമേയ നോട്ടീസ് എളമരം കരീം ബിനോയ് വിശ്വം തുടങ്ങിയവരാണ് നോട്ടീസ് നൽകിയത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എട്ട് ശതമാനമാകുമെന്ന് നിതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാർ അറിയിച്ചു ചരക്കുസേവന നികുതിയടക്കം സാമ്പ ത്തികപരിഷ്ക്കരണങ്ങൾ ഗുണഫലങ്ങൾ നൽകിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് വിലയിരുത്തൽ

ഐക്യരാഷ്ട്രസംഘടനാ ആസ്ഥാനത്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുക യായിരുന്നു രാജീവ് കുമാർ അടുത്ത വർഷങ്ങളിൽ ഇപ്പോഴത്തെ ഏഴ് ശതമാനം വളർച്ചയിൽ നിന്ന് ക്രമാനുഗതമായി വളർച്ചാനി രക്ക് വർധിപ്പിക്കാൻ ഗവൺമെന്റ് നടപടികൾ ആവിഷ്ക്കരിക്കു മെന്നും അഞ്ച് ട്രില്യൻ ഡോളർ സമ്പദ്വ്യവസ്ഥ നേടിയെടുക്കു മെന്നും രാജീവ്കുമാർ ശുഭാപ്തിവിശ്വാസം പ്രകടിപ്പിച്ചു

ഐ എമ്മിന്റെ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്ക മായി തിരുവനന്തപുരത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യ ഗൃഹസന്ദർശനം ജനങ്ങളും ഗവൺമെന്റും പാർട്ടിയും തമ്മിൽ മികച്ച ബന്ധം സൃഷ്ടിക്കാൻവേണ്ടിയാണ് ഒരാഴ്ചത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്

വിരാട് കോഹ്ലി നയിക്കുന്ന ടീമിൽ റിഷബ് പാസ്ഥ് മൂന്ന് ഫോർമാ റ്റിലും വിക്കറ്റ് കീപ്പറാകും

മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളും രണ്ട് ടെസ്റ്റും മൂന്ന് ഏകദിന ങ്ങളും അടങ്ങുന്നതാണ് പരമ്പര പഴയകാല പത്രപ്രവർത്തന പാരമ്പര്യത്തിലേക്ക് മാധ്യമപ്ര വർത്തകർ തിരിച്ച് പോകണമെന്ന് മന്ത്രി എ

ഇപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥ പത്രപ്രവർത്തനമാണോ യെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ രാജീ വൻ കാവുമ്പായി സ്മാരക പത്രപ്രവർത്തക അവാർഡ് ദേശാഭി മാനിയിലെ എ വി അനിൽകുമാറിന് സമർപ്പിച്ച് സംസാരിക്കുക യായിരുന്നു മന്ത്രി ബിഹാർ സ്വദേശിനിയുടെ പീഡനപരാതിയിൽ ബിനോയ് കോടിയേരി ഇന്ന് മുംബൈ ഓഷിവാര പൊലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യകാലയളവിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പൊലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന വ്യവസ്ഥയെ തുടർന്നാണിത്

എ പരിശോധനയ്ക്കാവശ്യമായ രക്ത സാമ്പിൾ നൽക ണമെന്ന് പൊലീസ് ആവശ്യപ്പെട്ടേക്കും പീഡനപരാതിയിൽ എഫ്

ആർ റദ്ദാക്കണമെന്നാവ ശ്യപ്പെട്ട് ബിനോയ് കോടിയേരി മുംബൈ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി മറ്റന്നാൾ ഹൈക്കോടതി പരിഗണിക്കും നെടുങ്കണ്ടം കസ്റ്റഡി മരണം സി ബി ഐ അന്വേഷിക്കണമെ ന്നാവശ്യപ്പെടുന്ന ഹർജി ഇന്ന് ഹൈക്കോടതിപരിഗണിക്കും മരിച്ച രാജ്കുമാറിന്റെ കുടുംബാംഗങ്ങളാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പി എസ് സി യുടെ പോലിസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിവിൽസ്റ്റേഷനിലെ പി എസ് സി ഓഫിസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പൊലിസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു

ക്ഷേത്രം മേൽശാന്തി അനിമംഗലം രാമൻനമ്പൂതിരി പ്രായം കുറഞ്ഞ വാര്യത്ത് ജയരാജ് എന്ന ആനക്ക് ആദ്യം ഉരുള നൽകി ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് നല്ലളത്തെ ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ് കരണ പ്ലാന്റിന്റെ നടത്തിപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റെടുക്കും സ്വകാര്യ ഏജൻസി പിൻമാറിയതോടെയാണ് കോർപ്പറേഷൻ നേരിട്ട് പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് മത്സ്യബന്ധന ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു